ശിവങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു

കടന്നുള്ള തടയുന്നതിലും വെടി നിർത്തൽ കരാർ ലംഘനത്തിനെതിരെയും സൈന്യത്തിന്റെ നടപടികൾ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു

മറ്റു ജില്ലകളിൽ അഞ്ഞൂറിനു താഴെ കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്

രും ആരോഗ്യ മേഖലയിൽ എല്ലാവരും ഒത്തു ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കോവിഡിനെ ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധിക്കാനായതെന്ന് മന്ത്രി ഇ

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആയുർവേദ വിഭാഗവും അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ വയോജന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രുമ മലപ്പുറം ജില്ലയിൽ കൊവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ നടപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ കെ

കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത നിർദിഷ്ട മേഖലകളാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായി കണക്കാക്കുന്നത് രോഗബാധിതരായവർ താമസിക്കുന്ന വീടും പരിസരവും ആയിരിക്കും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തടയാത്ത വിധമായിരിക്കും ഇത് നടപ്പാക്കുക

പനിയും ഇൻഫ്ളുവൻസാ ലക്ഷണങ്ങളും ഉള്ളവരിലാണ് മുമ്പ് കൂടുതൽ പരിശോധന നടത്തിയിരുന്നതെങ്കിൽ ഇനി രോഗവ്യാപന സാധ്യതയുള്ള അതിഥി തൊഴിലാളികൾ ട്രക്ക് ഡ്രൈവർമാർ ബസ് ജീവനക്കാർ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ പൊതുപ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കിടയിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഡിഎംഒ വ്യക്തമാക്കി രും കോവിഡ് രോഗഭീതി മാത്രമല്ല ഏത് പ്രതിസന്ധിയും നേരിടാൻ ആത്മധൈര്യം വ്യക്തിപരമായും സാമൂഹികമായും മനുഷ്യൻ ആർജ്ജിക്കേണ്ടതുണ്ടെന്ന് കവി പി

തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക് പി വി

പരിസ്ഥിതി സൌഹൃദവും മണ്ണിൽ അലിഞ്ഞു ചേരുന്നതും പുനചംക്രമണം ചെയ്യാൻ കഴിയുന്നതുമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ

രുര കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു രാവിലെ തിരുവനന്തപുരത്തെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശിവശങ്കറിനെ കൊച്ചിയിലെത്തിച്ച് ആറ് മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്

രുര കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ ഹാച്ചറി കേന്ദ്രത്തിന് കണ്ണൂർ പുതിയങ്ങാടിയിൽ മന്ത്രി ജെ

രംഭ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ധർമ്മടം ഗ്രാമ പഞ്ചായത്തിലെ പാലയാട് അംബേദ്കർ കോളനിയിൽ നടപ്പാക്കിയ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് മന്ത്രി എ

ബാലൻ നിർവഹിക്കും

പുലർച്ചെ പള്ളികളിലും വീടുകളിലും മുഹമ്മദ് നബിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൌലിദ് പാരായണവും പ്രത്യേക പ്രാർഥനകളും നടന്നു

മദ്റസാ തലത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും ഇത്തവണ ഓൺലൈനായാണ് നടത്തുന്നത് സ്നേഹത്തിൻെറയും സാഹോദര്യത്തിൻെറയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് രംഭ തൃശൂർ ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ നബിദിനാഘോഷങ്ങൾ ഒഴിവാക്കാൻ മന്ത്രി എ

മുഹമ്മദ് നബി മുന്നോട്ടുവെച്ച വിശ്വമാനവികതയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്ന കാലമാണിതെന്ന് മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു രംഭ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഐക്യത്തിന്റെയും നബിസന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നബിദിന പരിപാടികൾ കൊവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു സംഘടിപ്പിക്കണമെന്ന് അഖിലേന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ

മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും സഹായം ചെയ്യാനും കരുണാർദ്രമായ മനസ്സിന് ഉടമകളാവാനുമാണ് പ്രവാചകർ പഠിപ്പിച്ചതെന്നും അദ്ദേഹം നബിദിന സന്ദേശത്തിൽ പറഞ്ഞു

ഇന്ന് ദുബായിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രാത്രി ഏഴരയ്ക്കാണ് മത്സരം രുര കായിക രംഗത്തെ അടിസ്ഥാന വികസനത്തിന് പ്രഥമ പരിഗണനയാണ് ഗവൺമെന്റ് നൽകുന്നതെന്ന് മന്ത്രി ഇ

ജയരാജൻ പറഞ്ഞു കണ്ണൂർ പന്ന്യന്നൂർ പഞ്ചായത്തിലെ മീത്തലെ ചമ്പാട് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രംഭ സംസ്ഥാന പ്രാദേശിക ഭരണകൂടങ്ങൾ ഒരേ വികസന നയം സ്വീകരിച്ച് പരസ്പരപൂരകമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഇത്രയും വികസനങ്ങൾ സാധ്യമായതെന്ന് മന്ത്രി എ

കോഴിക്കോട് കൊളത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രുര ഇടുക്കി ജില്ലയിലെ ആറാമത് പട്ടയമേള അടുത്ത മാസം നാലിനു കഞ്ഞിക്കുഴിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

രുമ സുഭിക്ഷ കേരളം പദ്ധതി മാർക്കറ്റിംഗ് ശൃംഖല ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനിലൂടെ നിർവഹിക്കും ചെറുതോണിയിലെ ചടങ്ങിൽ മന്ത്രി എം

മണി അധ്യക്ഷത വഹിക്കും

രും വയനാട് പുൽപ്പള്ളി ചീയമ്പത്ത് നിന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് കൂട് വെച്ച് പിടികൂടിയ കടുവയെ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനമായി

ദേഴ കോഴിക്കോട് മെഡിക്കൽ കോളജ് ജനറൽ മെഡിസിൻ വിഭാഗം മുൻ മേധാവി ഡോ

അംബുജാക്ഷൻ നിര്യാതനായി

കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഏഴരയോടെയായിരുന്നു അന്ത്യം